നൃൂയോർക്കിൽ നടക്കുന്ന ഐകൃരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച

പുരസ്കാരം

ഒരുക്കങ്ങൾ പൂർത്തിയായി വോട്ടെണ്ണൽ വെള്ളിയാഴ്ച

ഇരുരാജ്യങ്ങളും തമ്മിൽ മികച്ച വ്യാപാര ബന്ധമാണ് നിലനിൽക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പ്രതികരിച്ചു പരസ്പരമുള്ള വ്യാപാര പ്രതിസന്ധികൾ പരിഹരിക്കുകയും ഇരുദിശകളിലേക്കുമുള്ള കച്ചവട ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു

കൂടിക്കാഴ്ച്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും സംയുക്ത വാർത്താസമ്മേളനം നടത്തി ഇസ്റ്റ്യും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനാകുമെന്ന് ട്ടൂംപ് പ്രത്യാശ പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോള്ല്പ്പെട്ടതിയിച്ചു പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് ശ്രീ

ഭീകരതൃയ്കൂമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ പ്രധാന്യമുന്തിയ്ക്ക് കഴിയുമെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തൃമ്മിലുള്ള വാണിജ്യ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുമെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ ചെന്നൈയിൽ കോസ്റ്റ് ഗാർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം സാരമായ ഭീകരവാദ വെല്ലുവിളികൾ നേരിടുന്നുവെന്നും ഭീകരാക്രമണങ്ങൾ ഉണ്ടാവാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഒമ്പത് ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതിയുടെ കോസ്റ്റ് ഗാർഡ് മെഡലുകൾ ശ്രീ

ഐ

ഭീകരസംഘടനയായ ജമാഅത് ഉൾ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്ന സംഘടനയുടെ പ്രവർത്തകനായ ജഹിദുൾ ഇസ്നാമിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്

ബോംബുകളും ഗ്രനേഡുകളും ഉപയോഗിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകളും എൻ ഐ

ഐ

ഈ കേസിൽ യു എ

എ ചുമത്താനും എൻ ഐ എ തീരുമാനിച്ചു

സി പി അധ്യക്ഷൻ ശരദ് പവാറിനൂഉ ിമര്യ്മകൻ അജിത് പവാറിനുമെതിരെ ഇ

മഹാരാഷ്ട്ര സംസ്ഥാന സഹകരണ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റമാണ് ചുമത്തിയത്

രണ്ട് തലമുറകളെ സ്വാധീനിച്ച ഇതിഹാസ താരം പുരസ്കാരത്തിന് അർഹനായതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പു മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ട്വീറ്റ് ചെയ്തു രാജ്യം മുഴുവനും അന്താരാഷ്ട്ര സമൂഹവും ഈ തെരഞ്ഞെടുപ്പിൽ സന്തോഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു

അമിതാഭ് ബച്ചനെ കേന്ദ്രമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കായി സമഗ്ര സംഭാവന നല്കുന്നവർക്കാണ് ഗവണ്മെന്റ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്

വോട്ടു രേഖപ്പെടുത്തിയ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന പാലാ കാർമ്മൽ സ്കൂളിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം

വെള്ളിയാഴ്ച രാവിലെ എട്ടു മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും

ഫിജി കിരിബാതി മാർഷൽ ദ്വീപ് തുടങ്ങി വിവിധ പസഫിക് ദ്വീപ് രാജ്യങ്ങിലെ രാഷ്ട്രതലവൻമാർ യോഗത്തിൽ പങ്കെടുത്തു

അസമത്വങ്ങൾ കുറച്ച് ജനങ്ങ്ളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിൽ സുസ്ഥിര വികസനം സാധ്യമാക്കാൻ വേണ്ട എല്ലാ സഹായവും ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് ശ്രീ

എസ് ഡോളറിന്റെ സഹായം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു ഈ സഹായം ഓരോ രാഷ്ട്രങ്ങൾക്കും അവർക്ക് താത്പര്യമുള്ള വികസന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്

ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ സഹായം ലഭ്യമാക്കുമെന്നും ശ്രീ

ദ്വീപ് സമൂഹങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം വർദ്ധിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്യമത്തെ വിവിധ രാഷ്ട്രത്തലവൻമാർ ഒന്നടങ്കം സ്വാഗതം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പളനിസ്വാമിയും ഇന്ന് ചർച്ച നടത്തും തിരുവനന്തപുരത്ത് വൈകിട്ട് മൂന്നിനാണ് ചർച്ച പറമ്പിക്കുളം ആളിയാർ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന നദീജല കരാറുകളെ കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും മുഖ്യമന്ത്രിയ്ക്ക് പുറമെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം

ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ജില്ലകളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ബാധകമാണെന്നും അദ്ദേഹം അറിയിച്ചു തിരുവനന്തപുരം തലസ്ഥാന ജില്ലയായതിനാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മാത്രമായിരിക്കും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കുക

പൊളിച്ചു നീക്കൽ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിങ്ങിന് ചുമതല നൽകി

അഞ്ച് ഫ്ളാറ്റുകളിലേക്കുമുള്ള വെള്ളം വൈദ്യുതി ബന്ധം വിച്ചേദിക്കാൻ നഗരസഭാ സെക്രട്ടറി കെ

ഫ്ളാറ്റ് പൊളിക്കുന്നതിന് ഘട്ടം ഘട്ടമായ പദ്ധതിയാണ് ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടു മാസം കൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കാനാണ് തീരുമാനം ഫ്ളാറ്റുടമകളുടെ ഹർജികൾ തള്ളിയ സാഹചര്യത്തിലാണ് നടപടികൾ

ബംഗാൾ ഉൾക്കടലിന്റെ പടിഞ്ഞാറ്റ് ഭാഗ്ത്ത് രൂപം കൊണ്ട ഹിക്ക ചുഴലിക്കാറ്റിന്റെ ഭാഗമായാണ് കേരളത്തിലും മഴ ലഭിക്കുന്നത്

ജാഗ്രത്ത് മുന്നറിയിപ്പിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അറബ്ബിക്കുട്ടലിൽ മീൻപിടിക്കാൻ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം ന്റൽകിയിട്ടുണ്ട്

ജമ്മു കാശ്മീരിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം